രേഖയിൽ ഇന്ത്യ സുരക്ഷ ശക്തമാക്കി

രാജ്യത്ത് കോവിഡ് രോഗമുക്തി നിരക്ക്

ഡൽഹിയിൽ രാജാജി മാർഗിലെ ഔദ്യോഗിക വസതിയിൽ രാവിലെ ഒൻപത് മുതൽ പൊതുദർശനത്തിന് വച്ച ഭൌതികശരീരത്തിൽ സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവർ ആദ രാഞ്ജലി അർപ്പിച്ചു

കേ ന്ദ്രമന്ത്രിമാർ ബി ജെ പി ദേശീയ അധ്യക്ഷൻ ്ര ജെ പി നദ്ദ കോൺഗ്ര സ് നേതാവ് അധീർ രഞ്ജൻ ചൌധരി ആർ ്എസ് എസ് മേധാവി മോഹൻ ഭാഗവത് തുടങ്ങി രാഷ്ട്രീയ്ക് ന്നേതാക്കളും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു

പ്രണബ് മുഖർജിയോടുള്ള ആഭർസൂചകമായി രാഷ്ട്രപതി ഭവനിലും പാർലമെന്റ് കെട്ടിടത്തിലും മറ്റു സർക്കാർ ഓഫീസുകളിലും ദേശീയപതാക പകുതി താഴ്ത്തിക്കെട്ടി

കേരളം ഉൾപ്പെടെയു ള്ള സംസ്ഥാനങ്ങളും ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്

അഞ്ച് പതിറ്റാണ്ട് നീണ്ട രാഷ്ട്രീയസപര്യയിൽ അദ്ദേഹം മൂന്ന് തവണ ലോക്സഭാംഗമായിരുന്നു

രാജ്യത്തെ വിവിധ സാമ്പത്തിക പരിഷ്ക്കാരങ്ങൾക്ക് തുടക്കമിട്ട അദ്ദേഹം തന്ത്രജ്ഞനായ രാഷ്ട്രീയ നേതാവും മികച്ച ഭരണാധികാരിയുമായിരുന്നു കോൺഗ്രസിന്റെയും മുൻ യു

എ സർക്കാരിന്റെയും നട്ടെല്ലായി പ്രവർത്തിച്ച പ്രണബ് മുഖർജി കേന്ദ്രസർക്കാരിലെ ബുദ്ധികേന്ദ്രമായിരുന്നു കേന്ദ്രത്തിൽ പ്രതിരോധം ധനകാര്യം വിദേശകാര്യം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇന്ദിരാ ഗാന്ധി നരസിംഹ റാവു മൻമോഹൻ സിങ് മന്ത്രിസഭകളിൽ അംഗമായിരുന്നു

ദുഃഖാചരണത്തിന്റെ ഭാഗമായി ദേശീയ പതാക അന്നേ ദിവസം താഴ്ത്തിക്കെട്ടും

യഥാർത്ഥ സുഹൃത്തിനെയാണ് നഷ്ടമായതെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ പറഞ്ഞു ഇസ്രായേൽ പ്രസിഡന്റ് റുവൻ റിവലിൻ നേപ്പാൾ പ്രധാനമന്ത്രി ശർമ്മ ഒലി ശ്രീലങ്കൻ പ്രസിഡന്റ് മഹിന്ദ രജപക്സെ തുടങ്ങിയവർ പ്രണബ് മുഖർജിയുടെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ചു

അതേസമയം മേഖലയിലെ സംഘർഷം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉന്നതതല ചർച്ചുകൾ നടന്നു വരികയാണ്

അത്വിന്റാൽ ഇരു രാജ്യങ്ങളും ഒത്തുതീർപ്പിൽ എത്തേണ്ടത് പ്രശ്രൂനമാണെന്നും അദ്ദേഹം പറഞ്ഞു

ഇന്നലത്തെ ഏഴ് മരണം ഉൾപ്പെടെയാണിത്

മദ്രാസ് ഐഐടി യിലെ സ്റ്റാർട്ട് അപ്പ് സംരംഭകരാണ് ഈ ഗവേഷണത്തിന് പിന്നിൽ വസ്ത്രങ്ങളുടെ പുറത്ത് കോട്ടിങ് ആയി ഉപയോഗിക്കുന്ന ഈ പദാർത്ഥം അഞ്ചുമിനിറ്റിനുള്ളിൽ വൈറസിനെ നശിപ്പിക്കും എന്നാണ് കണ്ടെത്തൽ

പരിശോധനയും സമ്പർക്ക രോഗികളെ കണ്ടെത്തുന്നതും വർധിപ്പിക്കുന്നതിലൂടെ മാത്രമേ ഈ സാഹചരൃത്തെ നേരിടാനാവൂ എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യ നാഥ് പറഞ്ഞു

ജപ്പാൻ സർക്കാരിന്റെ അന്താരാഷ്ട്ര സഹകരണ ഏജൻസി പദ്ധതിയുടെ ഭാഗമായാണിത് കോവിഡ് പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്തുക ഭാവിയിൽ പകർച്ചവ്യാ്ഡ്ലികൾ ഫലപ്രദമായി നേരിടാൻ ഇന്ത്യയിലെ ആരോഗ്യ സൃപ്പിക്ടർന്ന്ം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ധനസഹായത്തിന്റെ പ്രിക്ഷ്യം

നാലാം ഘട്ട ലോക്ക് ഡൌൺ ഇളവുകൾ സംബന്ധിച്ച ഉത്തരവുകൾ സർക്കാർ ഇന്നലെ പുറത്തിറക്കി

കോവിഡിന്റെ പശ്ചാത്തലത്തിൽ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും പരീക്ഷ

ഇ നീറ്റ് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി റെയിൽവേ യാത്രാസൌകര്യമൊരുക്കിയിട്ടുണ്ട്

പോസ്റ്റൽ വകുപ്പിന്റെ ബിഹാർ സ്ട്ര്ക്കിളിലെ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനവും ശില്പാ്സ്മാപനകർമവും വീഡിയോ കോൺഫറൻസിങ്ങിലൂടെ നിർവ്ക്കിച്ചു് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

കോവിഡ് മാർഗനിർദേശങ്ങൾ മുൻനിർത്തി അതേദിവസം മറ്റൊരു സമയത്ത് രാജ്യസഭയും ചേരാനാണ് തീരുമാനം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സമ്മേളനത്തിന് മുന്നോടിയായി കടുത്ത മുൻകരുതലുകളെടുക്കുന്നുണ്ട്

പി മാർക്ക് കോവിഡ് പരിശോധന സാമൂഹിക അകലം പാലിച്ചുള്ള ഇരിപ്പിടക്രമീകരണം തുടങ്ങിയവയടക്കം പാലിക്കും

സാമൂഹ്യ അകല മാനദണ്ഡങ്ങൾ കർശനമായതിനാൽ ജനങ്ങൾക്ക് പൊതുസ്ഥലങ്ങളിൽ ആരതി നടത്താൻ അനുമതിയില്ല കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങളുടെ ഭാഗമായി കണ്ടെയിൻമെന്റ് സോണിലെ ജനങ്ങൾക്ക് വീടിനുള്ളിൽ തന്നെ ചടങ്ങ് നിർവഹിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്

പ്രതികളെ രക്ഷപ്പെടാൻ സഹായിച്ച ആളിനെ കസ്റ്റഡിയിലെടുത്തതായി സൂചനയുണ്ട്

തിരുവോണത്തലേന്ന് അർധരാത്രിയിലാണ് രണ്ടു ഡി

എഫ് ഐ പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയത്